നാളെ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും

മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള കമ്പനികളെ മറ്റന്നാൾ തീരുമാനിക്കും സാധനങ്ങൾ സ്റ്റീക്കാൻ നാളെ വരെ സമയം

താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കെഎസ്ആർടിസി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും

കോഴിക്കോട് കൂടത്തായിയിലെ തുടർമരണങ്ങൾ അന്വേഷിക്കുന്ന സംഘം മുഖൃപ്രതി ജോളിയുടെ ഭർത്താവ് ഷാജുവിനെ ചോദ്യം ചെയ്യുന്നു

പുസ്തകപൂജയ്ക്കും ആയുധ പൂജയ്ക്കുമായി ക്ഷേത്രങ്ങളിൽ വലിയ ഭക്ത ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് നാളെയാണ് വിജയദശമി ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം കുരുന്നുകൾ ആദ്യാക്ഷരമെഴുതി വിദ്യാരംഭം കുറിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും മഹാനവമി ആശംസകൾ നേർന്നു

പുലർച്ചെ അഞ്ചുമുതൽ തുഞ്ചൻപറമ്പിൽ കുട്ടികളുടെ നാളെ എഴുത്തിനിരുത്ത് ആരംഭിക്കും

വിദ്യാ മണ്ഡപത്തിൽ ഗുരുക്കന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തും മഹാനവമി വിജയദശമി മഹാനവമി ദിനമായ ഇന്ന് തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ ഭക്തജനങ്ങളുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത്

പ്രിജ്ച്ചു്ര സരസ്വതീ മണ്ഡപം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ക്രിയ്ക്ക്കം ചാമുണ്ഡീക്ഷേത്രം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക്ടം ഗാന്ധാരി അമ്മൻ കോവിൽ ശ്രീകണ്ഠേശ്വരം മഹാദേവ് ക്ഷേത്രം ശംഖുമുഖം ദേവീക്ഷേത്രം തുടങ്ങി ഒട്ടനവധി ക്ഷേത്രിങ്ങളിൽ നാളെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും

മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നും സാധനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ നാളെയോടെ അവസാനിക്കും സമയപരിധി കഴിഞ്ഞും അവശേഷിക്കുന്നവ നഗരസഭയും റവന്യൂ വകുപ്പും ചേർന്ന് നീക്കം ഇതുവരെ ഉടമകളെത്താത്ത ഫ്ളാറ്റുകളിലെ സാധനങ്ങൾ ചെയ്യും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോഡൌണുകളിലേക്ക് മാറ്റും ഫ്ളാറ്റുടമകൾക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും

അനർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടി തുടരുകയാണ് ഇത്തൂവ്രെ നാല് ലക്ഷത്തോളം കുടുംബങ്ങളെയാണ് ഈ രീതിയിൽ ഒഴിവാക്കിയത്

കേസ് പരിഗണിക്കുന്നത് നേരത്തെയാക്കണ മെന്ന് കെ എസ് ആർ ടി സി മറ്റെന്നാൾ കോടതിയിൽ ആവശ്യപ്പെടും

എസ് ആർ ടി

കണ്ടാലറിയുന്ന നൂറോളം പേർക്കെതിരെയാണ് തിരുവമ്പാടി പോലീസ് സ്വമേധായ കേസെടുത്തത്

എൻ കാരശ്ശേരി ഡോ ആസാദ് കെ അജിത തുടങ്ങിയവരുടെ സംഘത്തെയാണ് ഇന്നലെ വൈകിട്ട് തടഞ്ഞത് ന്യൂനപക്ഷ പരിശീലനം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാനത്ത് കൂടുതിൽ പരിശീലനകേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം കണ്ണനല്ലൂരിൽ തുടങ്ങിയ ന്യൂനപക്ഷ യുവജനു പ്പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജില്ലയിൽ മാത്രം മൂന്ന് പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലൂാണ്ണെന്നും മന്ത്രി പറഞ്ഞു

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫ

സ്കൂൾ കവാടങ്ങളിൽ ക്യൂ ആർ കോഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു നെല്ല് സംഭരണം നെല്ല് സംഭരണത്തിൽ കൃഷിക്കാരുടെയും മില്ലുകാരുടെയും ഇടയിൽ എജന്റുമാരായി പ്രവത്തിക്കുന്നവരുടെ ചൂഷണം ഗവൺമെന്റ് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി വി

തൃശൂർ ടൌൺഹാളിൽ തൃശൂർപൊന്നാനി കോൾനില വികസന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ആണ് റെയ്ഡ് നടത്തിയത് തമിഴ്നാട്ടുകാരായ മൂന്നു പേരെ അറസ്റ്റ് ചെയ്തു പാവറട്ടി കൊലപാതക കേസ് പാവറട്ടി കസ്റ്റഡി കൊലപാതകക്കേസിൽ കുറ്റാരോപിതനായ എക്സൈസ് സ്പെഷ്യൽ സ്കാഡ് ഡ്രൈവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് ശേഷം പൊലീസ് വിട്ടയച്ചു കഞ്ചാവ് കേസിലെ പ്രതി രഞ്ജിത്ത് ക്ട്രിക്ടുമാർ കസ്റ്റഡിയിൽ മരിച്ച കേസിലാണ് അന്വേഷണം

വണ്ടിക്കടവ് സ്വദേശികളായ പുതുക്കുളത്ത് ഷൈലജ മകൻ അജിത്ത് എന്നിവരാണ് മരിച്ചത് വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ വെച്ചാണ് സംഭവം

ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന തിരക്ക് പരിഗണിച്ചാണ് നടപടിയെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു നിയന്ത്രണങ്ങളുടെ ഭാഗമായി വവ്വാക്കാവ് മുതൽ കായംകുളം വരെയുള്ള ഹൈവേയുടെ ഇരുവശങ്ങളിലും പാർക്കിംഗ് അനുവദിക്കില്ല

ജില്ലയിലെ ഏതാനും വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപട്ടി ഗാന്ധിജയന്തി വാരാഘോഷം ഗാന്ധിജയന്തി വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപനം മറ്റന്നാൾ തൃശൂരിൽ നടക്കും തൃശൂർ ്ടൌൺ ഹാളിൽ വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഗവ ചീഫ് വിപ്പ് അഡ്വ കെ രാജൻ ഉദ്ഘാടനം ചെയ്യും